കേസിൽ അറസ്റ്റിലായ അലൻ താഹ എന്നിവരുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി

ഐ സി സി ടെസ്റ്റ് റാങ്കിംഗിൽ ഇന്ത്യയുടെ വിരാട് കോഹ്ലി രണ്ടാം സ്ഥാനത്ത് മായങ്ക് അഗർവാൾ ആദ്യ പത്തിൽ ഇടം നേടി

എസ് എൽ വി

നഗരാസൂത്രണം

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ആർ ഒ യിലെ മുഴുവൻ ടീമംഗങ്ങളെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു

ഇതിലൂടെ എഫ്

ഐ യുടെ ധാനൃസംഭരണത്തിന് കേന്ദ്ര ബജറ്റിൽ കൂടുതൽ വിഹിതം അനുവദിക്കാൻ കഴിയും

സി ഐ യുടെ കടബാധ്യത കുറയ്ക്കാനും പലിശ ലാഭിക്കാനും ഭക്ഷൃസബ്സിഡി കുറയ്ക്കാനും ഇതിലൂടെ സാധിക്കും

രാജ്യത്തെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ചണ കർഷകർക്കും തൊഴിലാളികൾക്കും മന്ത്രിസഭയുടെ ഈ തീരുമാനം ഏറെ പ്രയോജനം ചെയ്യും

പ്രതിവർഷം ഒരു രൂപ ലൈസൻസ് ഫീസ് ഈടാക്കിയാകും ഭൂമി നൽകുക

എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉടമസ്ഥതയിൽ ഉള്ളതാണ് ഈ ഭൂമി

ഈ രംഗത്ത് ഇരുരാജൃങ്ങളും സഹകരിച്ച് പ്രവർത്തിക്കാൻ ഇത് സഹായകരമാവും

ബി ജെ പി ഝാർഖണ്ഡ് മുക്തിമോർച്ചു ഝാർഖണ്ഡ് വികാസ് മോർച്ച എ ജെ എസ് യു തുടങ്ങി വിവിധ പാർട്ടി നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവമാണ്

നാളെയാണ് മൂന്നാംഘട്ട വോട്ടെടുപ്പിനുള്ള പത്രിക പിൻവലിക്കേണ്ട അവസാന ദിവസം

കൂടുതൽ വിവരങ്ങളുമായി സുവർണ വോയ്സ് ത്രികക്ഷി സഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടതിന് തൊട്ടുപിന്നാലെ കഴിഞ്ഞ ദിവസം രാത്രി ഉദ്ദവ് താക്കറെ രാജ്ഭവനിലെത്തി ഗവർണർ ഭഗത് സിംഗ് കോഷ്യാരിയെ കണ്ട് ഗവൺമെന്റ് രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചു ഉദ്ദവ് താക്കറെ നാളെ വൈകുന്നേരം ശിവാജി പാർക്കിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് മുതിർന്ന ശിവസേന നേതാവ് പറഞ്ഞു

എ മാരുടെ പിന്തുണയുള്ള കത്ത് താക്കറെ നൽകിയതായും അദ്ദേഹം പറഞ്ഞു നിലവിലെ നിയമസഭയിൽ അംഗമല്ലാത്ത ഉദ്ദവ് താക്കറെ അടുത്ത ആറ് മാസത്തിനുള്ളിൽ നിയമസഭയിലേക്ക് ജനവിധി തേടണം അതിനിടെ മഹാരാഷ്ട്രയിൽ പ്രത്യേക നിയമസഭാ സമ്മേളനം ഇന്ന് രാവിലെ ആരംഭിച്ചു

എ മാരായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങ് പുരോഗമിക്കുകയാണ്

എൻസിപി നേതാക്കളായ അജിത് പവാർ ചഹൻ ബുജ്ബാൽ കോൺഗ്രസ് നേതാക്കളും മുൻ മുഖ്യമന്ത്രിമാരുമായ അശോക് ചവാൻ പൃഥിരാജ് ചവാൻ എന്നിവർ എം എൽ എ

ന്യൂസ്ഡെസ്ക് ആകാശവാണി

നാല് കിലോമീറ്ററിനുള്ളിലെ യുദ്ധ ടാങ്കറുകൾ നശിപ്പിക്കാനുള്ള കഴിവ് ഇവയ്ക്കുണ്ട് വാഹനങ്ങൾ ഹെലികോപ്റ്ററുകൾ കപ്പലുകൾ തുടങ്ങിയവയിൽ നിന്നും പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്ന മിസൈൽ സ്പൈക്കുകൾ മലനിരകളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വിന്യസിക്കാൻ കഴിയും

ഈ പ്രദേശങ്ങളിൽ സ്ഫോടകവസ്തുക്കളുടെ സാന്നിദ്ധ്യമുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ സഹകരിക്കണമെന്നും നിർദ്ദേശമുണ്ട് പുൽവാമയിലെ പചാർ രാജ്പോറ പ്രദേശത്ത് ഇന്നലെയുണ്ടായ ഏറ്റുമുട്ടലിൽ രണ്ട് ഭീകരർ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് പോലീസിന്റെ നടപടി

പ്രതികൾക്ക് മാവോയിസ്റ്റ് ബ്ന്ധമുന്നെ പ്രോസിക്യൂഷന്റെ വാദം കണക്കിലെടുത്താണ് പുരോഗമിക്കുകയാണെന്നും ഈ അവസരത്തിൽ ജാമ്യം അനുവദിക്കാനാവില്ല എന്ന പ്രോസിക്യൂഷന്റെ വാദം ഹൈക്കോടതി ഡിവിഷൻ ബഞ്ച് പരിഗണിക്കുകയായിരുന്നു

രാവിലെ ഒമ്പതിന് സ്പീക്കർ പി

ടെസ്റ്റ് റാങ്കിംഗിൽ ഇന്ത്യയുടെ വിരാട് കോഹ്ലി രണ്ടാം സ്ഥാനത്ത്

സ്ട്രിിസ്റ്റി ടെസ്റ്റ് റാങ്കിംഗിൽ ആദ്യമായാണ് മായങ്ക് ഇടം നേടുന്നത്

അടുത്ത മാസം നാലിന് ട്രംപിനെതിരായ ഇംപീച്ച്മെന്റ് നടപടികളിലെ ആദ്യവാദം നടക്കുമെന്ന് ജുഡീഷ്യറി സമിതി ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു ഉക്രൈയിനിലെ അമേരിക്കൻ സൈന്യത്തെ തിരിച്ചുവിളിക്കുമെന്ന് ട്രംപ് വെല്ലുവിളിച്ചത് ജോബൈഡനെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുന്നതിനായി ഉക്രൈന് മേൽ സമ്മർദ്ദം ചെലുത്താനായിരുന്നോ എന്ന് സമിതി പരിശോധിക്കും

ഇന്ന് കലാ അക്കാദമിയിൽ സംഗീത മാന്ത്രികൻ ഇളയരാജയുടെ സംഗീതനിശ അരങ്ങേറും നാളെ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ പ്രത്യേക പുരസ്കാരം നൽകി ഇളയരാജയെ ആദരിക്കുന്നുണ്ട്

സംസ്ഥാനത്തെ ആദ്യത്തെ കിഴുകൻ സംരക്ഷണ പരിപാലന കേന്ദ്രം മഹാരാജ് ഗഞ്ച് ജില്ലയില്ല് ഫ്രേന്ദയിൽ സ്ഥാപിക്കുമെന്ന് പരിസ്ഥിതി മന്ത്രി പാർലമെന്റിൽ അറീയിച്ചു